നിർമ്മിക്കുന്ന ഫാക്ടറി ഉത്തർപ്രദേശിലെ അമേത്തിയിൽ പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും

പുറത്തിറക്കിയ പുസ്തകം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രകാശനം ചെയ്തു

കുടിവെള്ളം വൈദ്യുതി ഉജ്ജ്വല പാചക വാതക കണക്ഷൻ തുടങ്ങിയവ രാജ്യത്തെ എല്ലാ പൌരൻമാർക്കും ഉറപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി

പാകിസ്താനുമായുള്ള കരാർ പ്രകാരം എഫ്

വിശദവിവരങ്ങളുമായി ദീപു

ഇതിനുപിന്നാലെയാണ് അമേരിക്കയുടെ നടപടി

പക്ഷേ തെളിവുസഹിതം ഇന്ത്യൻ വ്യോമസേന രംഗത്തെത്തിയതോടെ പാകിസ്താൻ പ്രതിരോധത്തിലാവുകയും അമേരിക്ക വിഷയത്തിൽ ഇടപെടുകയുമായിരുന്നു

പാകിസ്താന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേനാ വിങ് കമാൻഡർ അഭിനന്ദനെ പാകിസ്താൻ വിട്ടയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം നേരത്തെ ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്താൻ തീവ ി സർവീസ് നിർത്തിവെച്ചത്

കരസേന മേധാവി ജനറൽ ബിപിൻ റാവത്തിന് നിലവിൽ ഇതേ സുരക്ഷ നൽകിയിട്ടു ്

ഇന്നുച്ചയോടെ നൌഷേറ സെക്ടറിലെ നിയന്ത്രണരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഷെല്ലാക്രമണം ഉ ായത് പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സേന ശക്ത്മായ തിരിച്ചടി നൽകി

ശ്രീ അഭിനന്ദിന്റെ ധൈര്യത്തിൽ രാജ്യം അഭിമാനം കൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മന്ത്രി രാജ്യവർധൻ രാത്തോഡ് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ക്ലോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവരും അഭിനനന്ദിനെ സ്ഥാഗതം ചെയ്തു

അഭിനന്ദിന്റെ ധീരതയിലും നിശ്ചയദാർഢ്യത്തിലും രാജ്യം അഭിമാനിക്കുന്നതായി പ്രതിരോധമന്ത്രി പറഞ്ഞു

ഇന്നലെ രാത്രിയാണ് അഭിനന്ദനെ വാഗാ അതിർത്തിയിലൂടെ പാകിസ്ഥാൻ ഇന്തൃയ്ക്കു തിരികെ കൈമാറിയത്

ഹക്കിംപെട്ടിലെയും സുളൂരിലെയും വ്യോമസേനാത്താവളങ്ങളിൽ തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും

വിവിധ വികസന പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും വിശ്വ ഉമിയാധാം ക്ഷേത്ര സമുച്ചയത്തിന് അദ്ദേഹം ശിലാസ്ഥാപനം നടത്തും തിങ്കളാഴ്ച ജാംനഗറിൽ സമുദ്രജലം ശുദ്ധീകരിക്കുന്ന പ്പാന്റിന്റെ നിർമാണോദ്ഘാടനവും അഹമ്മദാബാദിൽ സിറ്റി മെട്രോ പ്രോജക്ടിന്റെ ഒന്നാംഘട്ടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേത്തിയിലാണ് ചടങ്ങ് കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷാ സേനയുടെ ആയുധബലം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ കഴിയും

യു പി പ്രതിരോധ ഇടനാഴി പദ്ധതിക്കും നിർദ്ദിഷ്ട ആയുധ നിർമ്മാണശാല പ്രോത്സാഹനമാകും ഇതോടൊപ്പം അമേത്തിയിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും വിദ്യാഭ്യാസം ആരോഗ്യം വൈദ്യുതി തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് കൌഹറിൽ നടക്കുന്ന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയായ ശേഷം ശ്രീ മോദിയുടെ ആദൃ സന്ദർശനമാണ് അമേത്തിയിലേത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മൻ കി ബാത്ത് റേഡിയോയിലൂടെ സാമൂഹിക വിപ്തവം പുസ്തകപ്രകാശനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്ന് അദ്ദേഹം

ഇയാളുടെ സ്വത്തുക്കളും സാമ്പത്തിക സ്രോതസുകളും മരവിപ്പിക്കാനും തീരുമാനമു ഹംസ ബിൻ ലാദൻ ഇപ്പോഴത്തെ അൽ ഖയ്ദ തലവൻ അയ്മൻ അൽ സവാഹിരിയുടെ ്പിൻഗാമിയാകുമെന്നുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോട്ടുകൾക്ക് പിന്നാലെയാണ് നടപടി

കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹാജരായത് കള്ളപ്പണ നിരോധന നിയമമനുസരിച്ചുള്ള നിയമവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ കൊച്ചാറിന്റെയും വീഡിയോ കോൺ ഗ്രൂപ്പിലെ വേണുഗോപാൽ ധൂത്തിന്റെയും വീടുകളിൽ എന്ഫോഴ്സ്ഉമന്റ് അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു

വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശരാശരി താപനിലയിൽ നിന്ന് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധനവാണ് കാണിക്കുന്നത്

സമൂഹ മാധ്യമം വഴി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിവരം കൈമാറാനും ധാരണയായി കേരളത്തിലെ സൈബർ ഡോമിന്റെ പ്രർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ എത്തിയ ദുബായ് പോലീസ് സംഘം ഡോമിന്റെ സഹകരണം ആവശ്യപ്പെട്ടു ദുബായ് പോലീസ് ബ്രിഗേഡിയർ ഖാലിദ് അൽ റസൂഖിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് കേരളത്തിലെത്തിയത്